അന്ത്യാഞ്ജലി ചെന്നൈ രാജാജി ഹാളിൽ പൊതുദർശനത്തിനുവെച്ച ഭൌതികശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ പതിനായിരങ്ങൾ കാത്തുനിൽക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരടക്കം പ്രമുഖർ കരു ണാനിധിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി രാവിലെ ചെന്നൈയിലെത്തും കരുണാനിധിയോട് ആദരസൂചകമായി ഇന്ന് രാജ്യവൃാപകമായി ദുഃഖാ ചരണം പ്രഖ്യാപിച്ചു

കലൈഞ്ജർ കരുണാനിധിക്ക് തമിഴകത്തിന്റെ കണ്ണീരൊടുങ്ങാത്ത അന്ത്യാഞ്ജലി ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന മുത്തു വേൽ കരുണാനിധിയുടെ ഭൌതികശരീരം പുലർച്ചെ അഞ്ചുമണിക്ക് രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പതിനായിരങ്ങൾ അന്ത്യാ ഞ്ജലി അർപ്പിക്കാൻ ചെന്നൈയിലെ തെരുവുകളിൽ കണ്ണീരോടെ കാത്തു നിൽക്കുകയാണ്

ഇന്നലെ രാത്രി എട്ടരയോടെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയ മൃതദേഹം ഗോപാലപുരത്തെ വീട്ടിലും പിന്നീട് സി ഐ ടി കോളനിയിലും കൊണ്ടുപോയ ശേഷമാണ് ഇന്ന് പുലർച്ചെ രാജാജി ഹാളിൽ എത്തിച്ചത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി കോൺഗ്രസ് അധ്യക്ഷൻ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരെല്ലാം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ഇന്ത്യയുടെയും തമിഴ്നാടിന്റെയും വികസനത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ തലമൂത്ത നേതാവായിരുന്നു കരു ണാനിധിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു അദ്ദേഹ ത്തിന് സമന്മാരായ അധികം ജനകീയ നേതാക്കൾ ഇനി രാജ്യത്തില്ലെന്ന് അനുശോചന സന്ദേശത്തിൽ രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

വെങ്കയ്യ നായിഡു പറഞ്ഞു സമൂഹത്തിന്റെ ആഴങ്ങളിൽ വേരുറപ്പിച്ച ജനകീയ നേതാവായിരുന്നു കരുണാനിധിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനു ശോചന സന്ദേശത്തിൽ അറിയിച്ചു പ്രാദേശിക അഭിലാഷങ്ങൾക്കൊപ്പം ദേശീയ പുരോഗതിക്കും പ്രാമുഖ്യം നൽകിയ നേതാവായിരുന്നു അദ്ദേഹ മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യതന്ത്രജ്ഞതയും സർഗ്ഗാത്മകതയും പൂർണ്ണമായി ഒത്തുചേർന്ന മഹത്വ്യക്തിയായിരുന്നു ഡോക്ടർ എം കരുണാ നിധിയെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അനുസ്മരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണ്ണായക ഇടപെടൽ ശേഷിയുണ്ടായിരുന്ന കരുത്തുറ്റ നേതാവിനെയാണ് കരുണാനിധിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു അണ്ണാദുരൈയ്ക്ക് ശേഷം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ശക്തമായ നേതൃത്വം നൽകിയ കരുണാനിധി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കരുത്തനായ നേതാ വായിരുന്നുവെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു കരുണാനിധിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുരാവിലെ ചെന്നൈയിലെത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുൾപ്പെടെ പ്രമുഖ ദേശീയ നേതാക്കളും അദ്ദേഹത്തിന് അന്ത്യോപചാ രമർപ്പിക്കാൻ എത്തുന്നുണ്ട് ഗവർണർ പി

തിരുവനന്തപുരത്തുനിന്ന് പ്രത്യേക വിമാനത്തിലായിരിക്കും യാത്ര കരുണാനിധിയോട് ആദരസൂചകമായി ഇന്ന് രാജ്യവ്യാപകമായി ദുഃഖാച രണം നടത്തുമെന്ന് ആഭൃന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്നത്തെ ഔദ്യോഗിക വിനോദപരിപാടികൾ റദ്ദാക്കി ഡൽഹിയിലും മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഇന്ന് ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും തമിഴ്നാട്ടിൽ എല്ലാ നഗരങ്ങളിലും പതാക പകുതി താഴ്ത്തികെട്ടാൻ കേന്ദ്രഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഒരാഴ്ചത്തെ ദുഖാചരണവും പ്രഖ്യാപിച്ചിട്ടു ണ്ട് അതിനിടെ കരുണാനിധിയുടെ സംസ്കാര ചടങ്ങിന് മറീന ബീച്ചിൽ സ്ഥലം അനുവദിക്കണമെന്ന ഹർജിയിൽ രാവിലെ എട്ടിന് ഹൈക്കോടതിയിൽ വാദം തുടരും മറീന ബീച്ചിൽ സംസ്കാരത്തിന് അനു മതി നൽകണമെന്ന ഡി എം കെയുടെ ആവശ്യം ഗവൺമെന്റ് തള്ളിയതി നെതിരെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കരുണാനിധിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലാ അതിർത്തികളിൽ സുർക്ഷ ശക്തമാക്കി

കേരളത്തിലേക്ക് പുറപ്പെട്ട ചരക്കുവാഹനങ്ങൾ തമിഴ്നാട് അതിർത്തിയിൽ ഡി എം കെ പ്രവർത്തകർ തടഞ്ഞു

പട്ടിക വിഭാഗക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ ക്രിയാത്മക നിർദ്ദേശങ്ങളും നടപടികളും സമാഹരിച്ച് സംസ്ഥാന ഗവൺമെന്റ് തിരുവനന്തപുരം പ്രഖ്യാപനം തയാറാക്കി നിയമസഭാ വജ്ര ജൂബിലി സമാപനത്തിന്റെ ഭാഗമായി നടത്തിയ ഫെസ്റ്റിവൽ ഓൺ ഡമോ ക്രസിയുടെ രണ്ടുദിവസത്തെ സമ്മേളനത്തിന്റെ അവസാനമാണ് പ്രഖ്യാ പനം ഇന്നലെ പാസാക്കിയത്

് കേന്ദ്ര റിയൽ എസ്റ്റേറ്റ് നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നതി നാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടു വിച്ചു റിയൽ എസ്റ്റേറ്റ് രംഗത്തെ മാഫിയ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ നടപടികളും നിയന്ത്രിക്കാനും ഗുണഭോക്താക്കളുടെ സംരക്ഷണം ഉറപ്പു വരുത്താനും ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ചട്ടങ്ങൾ കൊണ്ടുവന്നത് ഇതനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഏജന്റുമാരും പ്രമോട്ടർമാരും റിയൽ എസ്റ്റേറ്റ് റഗ്ഗുലേറ്ററി അതോറി റ്റിയിൽ എല്ലാ വിശദാംശങ്ങളും സഹിതം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്

അതോറിറ്റി അംഗങ്ങളെ നിശ്ചയിക്കാൻ സെലക്ഷൻ കമ്മിറ്റി രൂപീക്രിച്ചിട്ടുണ്ട് ് ് ് ് ് ് ് രാജ്യ സഭാ ഉപാ ധ്യക്ഷ സ്ഥാന ത്തേക്ക് കോൺഗ്ര സ് സ്ഥാനാർത്ഥിയെ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എൻ ഡി എയിലെ ഐക്യജനതാദൾ സ്ഥാനാർത്ഥി ഹരിവംശ് നാരായൺ സിംഗിനെ സമവായത്തിലൂടെ രാജ്യസഭാ ഉപാധ്യക്ഷനാക്കാൻ ശ്രമം തുടരുകയാണ് നിഷ്പക്ഷ കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പിയും സഖ്യത്തിലെ മറ്റു പാർട്ടികളും ശ്രമിച്ചുവരികയാണ് ശിവസേന എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുനൽകിയിട്ടുണ്ട് നാളത്തെ രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ പത്രികാസമർപ്പണം ഇന്ന് അവ സാനിക്കും ് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത നാളത്തെ ഭാരത് ബന്ദിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാ വലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ദളിത് പീഡന നിരോധന നിയമത്തിലെ വൃവസ്ഥകൾ ദുർബലമാക്കിയ സുപ്രീം കോടതി നടപടിക്കെതിരെയാണ് ഓൾ ഇന്ത്യ അംബേദ്കർ മഹാസഭയുടെ നേതൃത്വത്തിൽ ബന്ദ് ആഹ്വാനം നൽകിയത്

കളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഗവർണർ പി സദാശിവം പറ ഞ്ഞു എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സൻസദ് ആദർശ് ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ

ക്കപ്പെട്ട മൂന്ന് പൊലീസ് ഉദ്യോഗസ്ഥരെ സർവ്വീസിൽ നിന്ന് പിരിച്ചുവിട്ടു ഡി വൈ എസ് പി അജിത്കുമാർ എ എസ് ഐ കെ ജിതകുമാർ സീനി യർ സിവിൽ പൊലീസ് ഓഫീസർ എസ് വി ശ്രീകുമാർ എന്നിവരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തത് ജിതകുമാറിനെയും ശ്രീകുമാറിനെയും വധശിക്ഷയ്ക്കും അജിത്കുമാറിനെ മൂന്നുവർഷം കഠിന തടവിനുമാണ് തിരു വനന്തപുരം സി ബി ഐ കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷിച്ചത്

ബോൾ ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ ആരംഭിച്ചു ആദ്യമത്സര ത്തിൽ കെ എ പി അഞ്ചാം ബറ്റാലിയൻ മലപ്പുറം ജില്ലാ പൊലീസിനെ പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ കേരള പൊലീസ് അക്കാദമിയെ കോട്ടയം ജില്ലാ പൊലീസ് തോൽപിച്ചു

കാലവർഷക്കെടുതി നേരിടുന്ന സംസ്ഥാനത്തെ വിവിധ ജില്ലക ളിൽ ഇന്ന് കേന്ദ്രസംഘം സന്ദർശനം നടത്തും ആഭ്യന്തരമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി എ

ധർമ്മറെഡ്സിയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്

എത്തിയ കേന്ദ്രസംഘം ഇന്ന് ആലപ്പുഴയിൽ വീണ്ടുമെത്തും രാവിലെ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ സംഘം സന്ദർശനം നടത്തും

മലയോരപ്രദേശ ങ്ങളിലെ പുഴകൾ കരകവിഞ്ഞു ഡാമുകളിലേക്ക് നീരൊഴിക്ക് വർദ്ധിച്ച തിനെ തുടർന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ തോത് കൂട്ടി ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോരപ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലി ക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി

ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തിയാർജ്ജിച്ചു അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്കും കൂടി

സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി

മുൻഫു ട് ബോൾ താരം കണ്ണൂർ പയ്യാമ്പലത്തെ പി

ശ്യാംസുന്ദർ നിര്യാതനായി

കേരളത്തിന്റെയും മഹാരാഷ്ട്രയുടെയും ഫുട്ബോൾ ടീം അംഗമായിരുന്ന ശ്യാം സുന്ദർ മൂന്നു വർഷം തുടർച്ചയായി സന്തോഷ് ട്രോഫി കേരള ടീമിൽ ഉണ്ടായിരുന്നു സംസ്കാരം ഇന്ന് രാവിലെ കണ്ണൂർ പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ നട ത്തും

ഇന്നലെ അന്തരിച്ച പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനി കണ്ണൂർ ആലപ്പടമ്പിലെ ഇ

കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒക്ടോ ബർ മാസത്തോടെ വലിയ വിമാനങ്ങളുടെ സർവ്വീസ് പുനരാരംഭിക്കുമെന്ന് പി

കുഞ്ഞാലിക്കുട്ടി എം പി അറിയിച്ചു